ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്

വിശദാംശങ്ങളുമായി അരുൺകുമാർ

തുടർന്ന് ധേമാജി ജില്ലയിലെ കാരംഗ് ച്ചപ്പോരിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പൊതു പരിപാടിയെ പ്രധാനമൃത്ത് അഭിസംബോധന ചെയ്യും

ഇന്ത്യൻ റെയിൽവേയുടെ നേതൃത്വത്തിലാണ് രണ്ടു തട്ടുകളായുള്ള പാലം നിർമ്മിച്ചിട്ടുള്ളത് താഴത്തെ തട്ടിൽ ഇരട്ട റയിൽപാതയും മുകളിൽ മൂന്ന് വരി റോഡുമാണുള്ളത് ഭാരംകൂടിയ സൈനിക ടാങ്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകാനുള്ള കരുത്ത് പാലത്തിനുണ്ട് ആസാം അരുണാചൽപ്രദേശ് സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ മേഖലയിലൂടെ ബ്രഹ്മപുത്ര നദിയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളെ ബന്ധിപ്പിച്ച് കൊണ്ട് കടന്നു പോകുന്ന ബോഗിബീൽ പാലം വടക്ക് കിഴക്കൻ മേഖലയുടെ വികസന കാര്യങ്ങളിൽ ഒരു നാഴിക കല്ലായി മാറും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ടി ഇളവുകൾ ഉപഭോക്താക്കൾക്ക് നിഷേധിച്ചതായി ജി

ഉപഭോക്താക്കളുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച സെൻട്രൽ കൺസ്യൂമർ വെൽഫയർ ഫണ്ടിലേക്ക് ഈ തുകയുടെ പകുതി നിക്ഷേപിക്കണമെന്നും അതോറിട്ടി നിർദ്ദേശിച്ചു

നാനാത്വത്തിൽ ഏകത്വം എന്ന ആൾയ്ക്ക്സൂചിപ്പിക്കുന്ന തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച കല്ലുകളുപയോഗിച്ചാണ് സമാധി പണിതിരിക്കുന്നത് ന്യൂഡൽഹിയിൽ രാജ്ഘട്ടിന് സമീപത്താണ് സമാധി സ്ഥലം

ഒൻപത് എന്ന സംഖ്യ നവരസങ്ങളെയും നവഗ്രഹങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നുവെന്നും അടൽ സ്മൃതി ന്യാസ് സൊസൈറ്റിയാണ് നിർമ്മാണത്തിന്റെ പൂർണ്ണ ചെലവ് വഹിച്ചിരിക്കുന്നതെന്നും ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ കുറിപ്പിൽ പറയുന്നു പത്ത് കോടി ചെലവിട്ട് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പാണ് സമാധിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്

ഗഡ്കരി ഇക്കാര്യം അറിയിച്ചത് ആൾക്കൂട്ട സംഘർഷങ്ങളെക്കുറിച്ച് നടൻ നസിറുദ്ദീൻ ഷാ നടത്തിയ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലായിരുന്നു ശ്രീ

രാജ്യം സുരക്ഷിതമായി നിലനിർത്തുന്നതിൽ ഇന്റലിജെൻസ് ബ്യൂറോയ്ക്ക് നിർണായക പങ്കുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

തടവുകാരെ സാമൂഹ്യ ക്ഷേമത്തിനായ് പ്രവർത്തിക്കുന്നവരാക്കി മാറ്റുന്നതിൽ പോലീസിന് നിർണായക പങ്കുണ്ടെന്നും ശ്രീ നിതിൻ ഗഡ്കരി കൂട്ടിച്ചേർത്തു

ഭേദഗതിയുടെ കരട് ഇന്നൂലെ ഐടി മന്ത്രാലയം പുറത്തുവിട്ടു

സാമൂഹ്യമാധ്യമങ്ങളിലെ ഉള്ളടക്കം നിയന്ത്രിക്കുകയല്ല മറിച്ച് ഭീകരവാദം തീവ്രവാദം സംഘർഷം കുറ്റകൃത്യങ്ങൾ എന്നിവ തടയുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി

ഇതോടെ ഊർജ്ജ ദുരുപയോഗവും ഊർജ്ജം പാഴാകുന്നതും തടയാൻ കഴിയുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി കടലാസ് ബില്ലുകൾ ഒഴിവാക്കി ബില്ലടയ്ക്കുന്നത് എളുപ്പമാക്കുകയാണ് ലക്ഷ്യം സ്മാർട്ട് മീറ്ററുകളുടെ നിർമ്മാണം യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു

രാഷ്ട്രപതിനിലയ പരിസരം ഹരിതവൽക്കരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം വനംവകുപ്പ് അധികൃതരുമായി ചർച്ച നടത്തി നിലയത്തിൽ സജീകരിച്ച ഉദ്യാനവും ജലധാരയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു

വീടുകൾ അലങ്കരിച്ചും ക്രിസ്മസ് ട്രീകളും പുൽക്കൂടും ഒരുക്കിയാണ് നാടെങ്ങും യേശുക്രിസ്തുവിന്റെ പിറവി ആഘോഷിക്കുന്നത് സമ്മാനങ്ങൾ കൈമാറിയും പരസ്പരം ആശംസകൾ നേർന്നും വിശ്വാസികൾ സൌഹൃദം പങ്കിട്ടു പാതിരാകുറുബാനയിൽ ലക്ഷക്കണക്കിനു വരുന്ന ക്രൈസ്തവ വിശ്വാസികൾ പങ്കെടുത്തു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു തിരുപ്പിറവി അറിയിച്ച് കരോൾ സംഘങ്ങൾ വീടുകളിലെത്തി ഇന്ന് പകൽ വിരുന്നൊരുക്കിയും വീടുകൾ സന്ദർശിച്ചും ജനങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു എന്നിവർ രാജ്യത്തിന് ക്രിസ്മസ് ആശംസകൾ നേർന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ് യേശുക്രിസ്തുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു മാനസിക മൂലൃങ്ങളും പരസ്പരമുള്ള കരുതലും കാത്തു സൂക്ഷിച്ച് ക്രിസ്മസ് ആഘോഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സ്നേഹവും സൌഹാർദ്ദവും ഊട്ടിയുറപ്പാക്കുന്നതാകട്ടെ ക്രിസ്മസെന്ന് ഉപരാഷ്ട്രപതി എം

കർഷകർക്ക് കൂടുതൽ സമ്പാദിക്കുന്നതിനുവേണ്ടി ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങളിൽ ഒന്നായ ജലസേചനം പദ്ധതിയിൽ കൂടുതൽ നിക്ഷേപം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു നടപ്പു വർഷത്തെ ധനകമ്മി പരിഹരിക്കാൻ ഗവൺമെന്റിന് കഴിയുമെന്ന് ശ്രീ

യാത്രാവാഹനങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ റിയൽ എസ്റ്റേറ്റ് വ്യോമയാന മേഖല എന്നിവയിൽ നിന്നുള്ള വരുമാനം ഗവൺമെന്റ് നിരീക്ഷിച്ച് വരികയാണ് സ്വകാര്യ നിക്ഷേപം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിനതീതമായി ചരക്ക് സേവന നികുതി സംബന്ധമായ വിവിധ പ്രശ്നങ്ങളിൽ നടത്തിയ ചർച്ചകൾക്ക് ജി

ടി യു കൌൺസിലിലെ എല്ലാ അംഗങ്ങളെയും ശ്രീ അരുൺ ജെയ്റ്റ്ലി പ്രശംസിച്ചു

ഞായറാഴ്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് ഭക്തജനങ്ങളുടെയും ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും സായുധ പോലീസ് സേനാംഗങ്ങളുടെയും അകമ്പടിയോടു കൂടിയാണ് ഘോഷയാത്ര പുറപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ടോടെ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ എത്തിയ ഘോഷയാത്ര അവിടെ നിന്ന് ഇന്നലെ ശബരിമലയിലേയ്ക്ക് യാത്ര തിരിച്ചു അതേസമയം ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് രണ്ട് ദിവസം ബാക്കി നിൽക്കെ വൻ തീർത്ഥാടന തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്

ഇറാനിലെ ച്ഛബഹാറിലാണ് മൂന്നു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഉന്നത സമിതി ചേർന്നത് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക ഓഫീസും തുറന്നിട്ടുണ്ട് നിഷ്പക്ഷവും പ്രവർത്തിപരവുമായ ചർച്ചകളാണ് തുറമുഖ കരാറിനെ സംബന്ധിച്ച് മൂന്ന് രാജ്യങ്ങളും തമ്മിൽ നടന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു വ്യാവസായിക പാതകളെ സംബന്ധിച്ചും മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ ധാരണയായിട്ടുണ്ട്

കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ ആളുകളും തദ്ദേശവാസികൾ ആയിരുന്നുവെന്ന് അഫ്ഗാൻ ആഭ്യന്തര മന്ത്രാലയ വക്താവ് നജീബ് ദാനിഷ് പറഞ്ഞു

അക്രമത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല